വോയിസ് ഇടത് എം പിമാരും ആദ്മി ആദ്മി അംഗങ്ങളും ചില കോൺഗ്രസ് അംഗങ്ങളും ചേർന്ന് ജെ എൻ യു വിഷയം സഭ ചേർന്ന ഉടൻ തന്നെ ഉന്നയിക്കാൻ ശ്രമിച്ചു

എന്നാൽ തുടർന്ന് പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സഭ രണ്ട് മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു ഫീസ് വർദ്ധനയ്ക്കും കരട് ഹോസ്റ്റൽ മാനുവലിനും എതിരെയാണ് ജെ എൻ യു വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തുന്നത് മുൻ സിംബാബ്വെ പ്രസിഡന്റ് റോബർട്ട് മുഗാബേയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് സഭ ഇന്ന് രണ്ട് മിനിട്ട് മൌനമാചരിച്ചിരുന്നു

ലോക്സഭയിൽ ചിട്ടിഫണ്ട് ഭേദഗതി ബിൽ സംബന്ധിച്ച് ചർച്ചകൾ ഇന്നും തുടരും ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിഷയവും ഉന്നയിച്ച് ക പ്രലോക്സഭയിൽ പ്രതിപക്ഷ ബഹളംശക്തം കോൺഗ്രസ് ഡി

പ്രതിഷേധിക്കുന്ന അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് സ്പീക്കർ ഓം ബിർല മുന്നറിയിപ്പ് നൽകി

സംസ്ഥാനത്തെ നിയന്ത്രണവും ട്രടഷറി സാമ്പത്തിക പ്രതിസന്ധികളും വികസന ക്ഷേമപദ്ധതികളെ തടസ്സപ്പെടുത്തുന്നുവെന്നും ഈ വിഷയം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ചർച്ച കൊണ്ടുവന്ന അടിയന്തരപ്രമേയത്തിന് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്

സതീശനാണ് ഗവൺമെന്റിന്റെ ധൂർത്തും നികുതി പിരിക്കുന്നതിലെ കെടുകാര്യസ്ഥതയും സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയതായും ശ്രീ വി

എന്നാൽ സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കമുണ്ടെന്നും പ്രതിസന്ധിയില്ലെന്നും മറ്റ് മാസങ്ങളേക്കാൾ ഈ മാസം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട നികുതി കുടിശ്ശിക ലഭിക്കാതെ വന്നതിനാലാണെന്നും ധനമന്ത്രി തോമസ്ക്കുക്കുസക് മറുപടി നൽകി

സാമ്പത്തിക പ്രതിസന്ധിയിലും വികസന പ്രവർത്തനങ്ങൾക്കൂട് ക്ഷേമപദ്ധതികൾക്കും തടസ്സം വരാത്ത രീതിയിൽ സംസ്ഥാനത്ത് പിക്സനം മുന്നോട്ടു പോകുന്നതായും ധനമന്ത്രി അറിയിച്ചു പ്രി മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തരപ്രമേയത്തിന് അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി

കഴിഞ്ഞ ദിവസം അരിഹാൽ പ്രദേശത്ത് നടന്ന സ്ഫോടനത്തിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് സുരക്ഷാസേന അറിയിച്ചു

അമിർ ഖാൻ എന്നറിയപ്പെട്ടിരുന്ന ഗുലാം നബി ഖാനും ബർക്കത്തുള്ളയുമാണ് പിടിയിലായ രണ്ട് ഭീകരരെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്

തെക്കൻ കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പൽഗാം പ്രദേശത്തുള്ള ഭൂമിയാണ് കണ്ടു കെട്ടിയത്

നിയമനത്തിനായുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട് മണിഗാമിലെ പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങൾ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു

കൂടുതൽ വിവരങ്ങളുമായി സുപ്രഭ വോയിസ് വീരമൃത്യു വരിച്ച സൈനികരുടെ സേവനത്തിനും ധീരതയ്ക്കും മുന്നിൽ രാജ്യം പ്രണാമം അർപ്പിക്കുന്നതായി ശ്രീ രാജ്നാഥ് സിംഗ് ടിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു

വടക്കൻ സിയാച്ചിനിൽ കാസി സൈനിക പോസ്റ്റിന് സമീപം ഉണ്ടായ ഹിമപാതത്തിൽ നാല് സൈനികരും രണ്ടു പോർട്ടർമാരുമാണ് മരിച്ചത് ഒരു സൈനികന് ഗുരുതരമായി പരിക്കേറ്റു

ലോകത്തെ ഏറ്റവും ഉയരമുള്ള ്യുദ്ധഭൂമിയാണ് സിയാച്ചിൻ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിറ്റർ സന്ദേശത്തിലൂടെ ഇന്ദിരാഗാന്ധിക്ക് സ്മരണാജ്ഞലികൾ അർപ്പിച്ചു കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗ് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി തുടങ്ങിയവർ ഇന്ദിരാഗാന്ധിയുടെ സമാധിസ്ഥലമായ ശക്തിസ്ഥലിൽ പുഷ്പാർച്ചന നടത്തി

നാല് ദശാബ്ദക്കാലത്തെ അമേരിക്കയുടെ നിലപാടുകൾക്കാണ് ഇതോടെ മാറ്റംവന്നത്

ചരിത്രപരമായ തെറ്റാണ് ഇതോടെ തിരുത്തപ്പെട്ടതെന്ന് അമേരിക്കയുടെ നയമാറ്റത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിപ്രായപ്പെട്ടു എന്നാൽ അമേരിക്കയുടെ നയവൃതിയാനം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരാണെന്ന് പലസ്തീൻ ഭരണകൂടം പ്രതികരിച്ചു

ഒൻപത് പേർക്ക് പരിക്കേറ്റു

പ്രസിഡന്റായി ഇന്നലെ ചുമതലയേറ്റ ശേഷം പുറത്തിറക്കുന്ന ആദ്യ ഉത്തരവാണിത് റോഡുകളുടെ പേര് സൂചിപ്പിക്കുന്ന ബോർഡുകളിലെ രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങളും നീക്കം ചെയ്യണമെന്ന് ശ്രീ രജപക്സ നിർദ്ദേശം നൽകി

കളിച്ച നാല് മത്സരങ്ങളിൽ ഒന്നിൽപ്പോലും ഇന്ത്യയ്ക്ക് ജയിക്കാനായിരുന്നില്ല

പാസ്പോർട്ട് നിയമങ്ങൾ ലംഘിച്ച് അനധികൃതമായി ഇന്തൃയിൽ പ്രവേശിച്ചതിനാണ ്ഇവരെ അസ്സമിൽ തടവിലാക്കിയിരുന്നത്